രാമ ജന്മഭൂമി ബാബ്റി മസ്ജിദ് ഭൂമി തർക്ക കേസിൽ സുപ്രിം കോടതിയിൽ വാദം തുടരുന്നു

വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും

ഭൂമിതർക്കം സംബന്ധിച്ച കേസ് പരിഗണിക്കവെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് ഇക്കാര്യം അറിയിച്ചത് ഭൂമി തർക്കം എന്നതിലുപരി രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം മനോവികാരം എന്നിവയും ഇതിലുണ്ട് ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡേ ഡി

ചന്ദ്രചൂഢ് അശോക് ഭൂഷൺ എസ്

മുഗൾ രാജാവായിരുന്ന ബാബർ ഇന്ത്യയിൽ എന്തു ചെയ്തുവെന്നും അതിനുശേഷം എന്തു സംഭവിച്ചുവെന്നും കോടതി പരിഗണിക്കേണ്ട ആവശ്യമില്ലെന്നും ഭരണഘടനാ ബൃഞ്ച് വ്യക്തമാക്കി മധ്യസ്ഥതയിലൂടെ തർക്കക്ക്സ് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും കോടതി പരിശോധിക്കുന്നുണ്ട് കേസിൽ വാദം തുടരുകയാണ്

എസ് നടത്തുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനും ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിന്റെ നിരോധനം ഏർപ്പെടുത്താനും ഇന്ത്യ ശക്തമായി പരിശ്രമിക്കുകയാണ് ചൈന ഉൾപ്പെടെ സുരക്ഷാ കൌൺസിലിലെ സ്ഥിരാംഗങ്ങളോട് ഇതു സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് ഭീകരവാദത്തിന്റെ കേന്ദ്രബിന്ദു പാകിസ്ഥാൻ ആണെന്ന സന്ദേശം ലോകത്തിന് നൽകുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

നേരത്തെ വിവിധ വികസന പദ്ധതിക്ൾക്ക് തുടക്കം കുറിക്കാൻ അദ്ദേഹം കന്യാകുമാരിയിലെത്തിയിരുന്നു

വോയ്സ് ബംഗളൂരുവിൽ സ്ഥാപിച്ച ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ ടെർമിനൽ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും കർണാടകത്തിൽ ഫലപ്രദമായ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും ബംഗളൂരുവിലെ ഇ

ഐ സി ആശുപത്രിയും മെഡിക്കൽ കോളേജും ഉദ്ഘാടനം ചെയ്യും ഹുബള്ളിയിൽ കർണാടക മെഡിക്കൽ സയൻസസിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ഉദ്ഘാടനം ചെയ്യും കലബുർഗിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ആശയ വിനിമയം നടത്തും തുടർന്ന് തമിഴ്നാട്ടിൽ എത്തുന്ന അദ്ദേഹം ഗതാഗതം റെയിൽവേ ഊർജ മേഖലകളിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും കാഞ്ചീപുരത്തെത്തുന്ന പ്രധാനമന്ത്രി അയ്യായിരം കോടിയുടെ ദേശീയ പാതാ വികസന പദ്ധതിക്ക് തുടക്കമിടും

വെല്ലൂർ തിരുവണ്ണാമലയിൽ വിലുപ്പുറം ജില്ലയിലൂടെ കടന്നുപോകുന്ന പാതയാണിത്

തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി കെ പളനി സ്വാമി ഉപമുഖ്യമന്ത്രി ഒ പനീർശെൽവം പി

സ്ഥാപകൻ ഡോ

രമാദോസ് തുടങ്ങി നിരവധി എ ഐ എ ഡി എം

വരുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിൽ എൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി ഇന്ന് വൈകിട്ട് ചെന്നൈയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി സംവദിക്കും

പുതുതായി വൈദ്യൂതീകരിച്ച ഈറോഡ് ട്രിച്ചി സേലം ഡിണ്ടിഗൽ റെയിൽപാതകളും പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യും

ലാന്റ് പോർട്ട് അതോറിറ്റിയുടെ മൂന്ന് നിർമ്മാണ പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും

സിഗ്നൽസ് എഞ്ചിനീയേഴ്സ് ആർമി ഏവിയേഷൻ ആർമി എയർ ഡിഫെൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എൻജിനേഴ്സ് ആർമി സർവീസ് ക്കോർപ്സ് ആർമി ഓർഡിനൻസ് കോർപ്സ് തുടങ്ങി പത്ത് വിഭാഗങ്ങളിലും സ്ഥിരം കമീഷൻ നൽകും നിലവിൽ രണ്ട് മേഖലയിൽ മാത്രമാണ് ഇത് ഉള്ളത് ഷോർട്ട് സർവ്വീസിൽ നാല് വർഷം സേവനം പൂർത്തിയാക്കിയ വനിത് ഓഫീസർമാരെയാണ് ഈ രീതിയിൽ നിയമിക്കുക

അടുത്ത ഒരു വർഷത്തേയ്ക്ക് കർഷകരുടെ വായ്ഭപകളിൽ സർഫാസി നിയമം ചുമത്തില്ല ഇതിനായി റിസർവ്വ് ബാങ്കിന്റെ പ്രത്യേക അനുവാദം വാങ്ങുമെന്നും മന്ത്രി അറിയിച്ചു മുഖ്യമുന്ത്രി വിളിച്ച ബാങ്കേഴ്സ് സമിതി യോഗത്തിനുശേഷമാണ് മുന്തി ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്

ഗവൺമെന്റിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ശക്തമായി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് റവന്യു മന്ത്രി അറിയിച്ചു

കുംഭമേള ഇന്ത്യൻ സംസ്കാരത്തിന്റേയും ആദ്യത്മികതയുടേയും പ്രതീകമാണെന്നും അടുത്ത മേളവരെ ഇക്കൊല്ലത്തെ കുംഭമേള ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുമെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

ഗതാഗതം കല ഉൾപ്പെടെ നിരവധി മേഖലകളിൽ മേള റെക്കോർഡുകൾ സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു മേളയുടെ നടത്തിപ്പിനായി സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സംബന്ധിച്ച് എടുത്തു പറയേണ്ടതാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

ടെറ്റിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സിബിഎസ്ഇ നീട്ടി

ഇരുപക്ഷത്തിന്റെയും താത്പര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അഫ്ഗാൻ ഉടമ്പടി നിലനിൽക്കൂവെന്നും പോംപിയോ വ്യക്തമാക്കി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സൽമായ് ഖാലിൽസാദും സംഘവും താലിബാനുമായി ചർച്ച നടത്തുന്ന പശ്ചാത്തലത്തിലാണ് പോംപിയോയുടെ ഈ വിലയിരുത്തൽ താലിബാൻ സംഘത്തിന്റെ പുതിയ തലവനായി താലിബാൻ സ്ഥാപകരിലൊരാളായ മുല്ല അബ്ദുൽ ഖാനി ബരാദാറും ചർച്ചയിൽ പങ്കെടുത്തു